പരാതികൾക്ക് ഇടയില്ലാത്തവിധം ഡാം മാനേ ജ്മെന്റ് നടപ്പാക്കുമെന്ന് കെഎസ്ഇബി തൃശൂർപൂരത്തിന് തെച്ചിക്കോട്ട്കാവ് രാമചന്ദ്രനെ എഴുന്നള ളിക്കുന്ന കാര്യത്തിൽ ഇടപ്പെടാന്റാ്വില്ലെന്ന് ഹൈക്കോടതി മഴക്കാലപൂർവ്വ പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി നാളെയും മറ്റന്നാളും സംസ്ഥാനവ്യാപക ശുചീകരണം ഐപിഎൽ ക്രിക്കറ്റിൽ രണ്ടാം യോഗ്യതാമത്സരത്തിൽ ഇന്ന് ചെന്നൈ ഡൽഹി മത്സരം

മുൻ ്സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് ഖലീഫുള്ളയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച മധ്യസ്ഥസമിതി നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഭരണഘടനാബെഞ്ച് കൂടുതൽസമയം അനുവദി ച്ചത് കേസ് രമൃമായി പരിഹരിക്കാൻ കഴിയുമെന്ന് സമിതിക്ക് വിശ്വാ സമുണ്ടെങ്കിൽ കോടതി തടസ്സം നിൽക്കില്ലെന്ന് ചീഫ്ജസ്റ്റിസ് രഞ്ജൻ ഗോഗൊയ് അറിയിച്ചു നിരവധി വർഷങ്ങളായി തീരുമാ നമാകാതിരിക്കുന്ന വിഷയത്തിൽ പരിഹാരമുണ്ടായേക്കുമെന്ന് കരുതുന്നതായി സമിതി റിപ്പോർട്ടിൽ സൂചനയുണ്ട് രണ്ട്മാസം കേസിലെ കക്ഷികളുമായി സമിതി ചർച്ച നടത്തിയിരുന്നു വരാനിരിക്കുന്ന കാലവർഷം മുൻനിർത്തി അണക്കെട്ടുകളുടെ സുരക്ഷയ്ക്കായി ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയെന്ന് മന്ത്രി എം എം മണി പറഞ്ഞു ഡാമുകൾ കൃത്യ സമയത്ത് തുറക്കാനും അടയ്ക്കാനും നടപടിക്രമങ്ങൾ കെഎസ്ഇബി പൂർത്തിയാക്കിയെന്നും മന്ത്രി ഇടുക്കിയിൽ പറഞ്ഞു കേരളത്തെ തകർത്ത മഹാപ്രളയത്തിന് ശേഷം വീണ്ടും കാലവർഷം എത്തുന്ന സാഹചര്യത്തിൽ കെഎസ്ഇബി അണക്കെട്ടുകളിൽ പരിശോധന വേഗത്തിലാക്കി

ഇൌ സാഹചര്യത്തിൽ ഇത്തവണ പരാതികൾക്കിട്ടയില്ലാത്ത വിധം ഡാം മാനേജ്മെൻറ് നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ് കെഎസ്ഇബി ഇടുക്കി അണക്കെട്ട് അടക്കം അവശ്യഘട്ടത്തിൽ തുറക്കാനുള്ള മുന്നൊരുക്കുങ്ങൾ അവസാനഘട്ടത്തിലാണ് കാലവർഷത്തിന് മുന്നോടിയായി എല്ലാം ഡാമുകളിലെയും അവസാനവട്ട മിനുക്കുപണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാര്മന്ന് പ്രതീക്ഷിക്കുന്നതായി കെഎസ്ഇബി വൃത്തങ്ങൾ അറിയിച്ചു തൃശൂർപൂർത്തിന് തെച്ചിക്കോട്ട്കാവ് രാമചന്ദ്രൻ എന്ന ആനയെ എഴുന്നളളിക്കുന്നത് സംബന്ധിച്ച കേസിൽ ഇടപെടാനാവില്ലെന്ന് ഹൈക്കോടതി

ആനയെ വിലക്കിയ കലക്ടറുടെ നടപടി ചോദ്യംചെയ്ത് സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ വിശദീകരണം തൃശൂർ പൂരം നടത്തിപ്പിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം കലർത്താൻ പാടില്ലെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു

മഴക്കാലപൂർവ്വ ശുചീകരണം പകർച്ചവ്യാധി പ്രതിരോധം എന്നിവ കാര്യക്ഷമമാക്കുന്നതിന് നാളെയും മറ്റന്നാളും സംസ്ഥാന വ്യാപകമായി ശുചീകരണം ഗവൺമെന്റ് തയ്യാറാക്കിയ രൂപരേഖ പ്രകാരമാണ് ജനപങ്കാളിത്തത്തോടെ പ്രതിരോധ പ്രവർത്തനം നട ത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫെയ്സ്ബുക്കിൽ കുറിച്ചു പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാളെ മുതൽ രണ്ട് ദിവസത്തെ സമഗ്ര ശുചീകരണ യജ്ഞത്തിൽ നാടൊന്നാകെ അണിനിരക്കണമെന്ന് വയനാട് ജില്ലാ കുളക്ടർ എ

പകർച്ചവ്യാധികൂൾക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉൌർജ്ജിതമാക്കാൻ ജനകീയ പങ്കാളിത്തതോടൊപ്പം ജീവനക്കാരും പങ്കാളികളാകണം കുടംബശ്രീ സാക്ഷരതാ പ്രവർത്തകർ യുവജന ക്ലബ്ബുകൾ സംഘടനകൾ മത മേലധ്യക്ഷൻ മാർ വ്യാപാരി വൃവസായി സംഘടനകൾ സ്വകാര്യ സ്ഥാപ്ന പ്രതിനിധികൾ തുടങ്ങി വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അണിനിരക്കണം

തെക്കൻകശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ പുലർച്ചെയാണ് ഏറ്റു മുട്ടൽ നട്ടന്നത് കൊല്ലപ്പെട്ടത് ഐ എസ് കമാന്റർ ഇഷ്താഖ് അഹ മ്മദ് എന്ന അബ്ദുള്ളഭായി ആണെന്ന് തിരിച്ചറിഞ്ഞതായി സൈനി കവൃത്തങ്ങൾ ശ്രീനഗറിൽ പറഞ്ഞു പ്രദേശത്ത് കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി തുടങ്ങിയവരടക്കം പ്രമുഖ നേതാക്കൾ പ്രചാരണ രംഗത്തുണ്ട് ഇന്ന് പഞ്ചാബിലും പശ്ചിമ ബംഗാളിലും ഹരിയാനയിലും പ്രമുഖ നേതാക്കൾ പ്രചാരണത്തിൽ പങ്കെടുക്കും

ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ടാം യോഗ്യതാമത്സരത്തിൽ ചെന്നൈ സൂപ്പർകിംഗ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും

ഒന്നാം യോഗൃതാമ ത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർകിംഗ്സിനെ പരാജയപ്പെടുത്തി ഫൈനലിൽ ഇടം നേടിയിട്ടുണ്ട് മറ്റന്നാൾ ഹൈദ രാബാദിലാണ് ഫൈനൽ കൊച്ചിയിൽ കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ആദ്യ സെമി യിൽ നാളെ ഇന്ത്യൻ നേവി എഫ്സി കേരളയെ നേരിടും രണ്ടാം സെമിയിൽ മറ്റന്നാൾ ഗോകുലം കേരുള റിസർവ് ടീം കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമുമായി ഏറ്റൂമുട്ടും കുട്ടികളുടെ രാജ്യാന്തര ചലച്ചിത്രമേള ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും

അരുമകളാണ് മക്കൾ അവരുടെ സംരക്ഷണവും സുരക്ഷയും സമൂഹത്തിന്റെ കടമ എന്നതാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടി കൾക്ക് മുൻഗണന് നൽകുന്ന ചലച്ചിത്രോത്സവത്തിന്റെ സന്ദേശം

മെറ്റലേഴ്സ് ജീവ നക്കാരെയും സ്വർണം കൊണ്ടുവന്ന ജല്ലറിയിലെ ജീവനക്കാ രെയും പൊലീസ് ചോദ്യം ചെയ്യുന്നു

തൃശൂരിൽ മറ്റന്നാൾ സുകുമാർ അഴീക്കോടിന്റെ തത്വമസി സാഹിത്യോത്സവത്തിൽ പുരസ്കാരം സമ്മാനിക്കും പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം

ടവ റിന്റെ നിർമാണം നിർത്തിവെക്കാൻ കഴിയില്ലെന്നും തിരുവനന്ത പുരത്ത് ശാന്തിവനം സംരക്ഷണസമിതിയുമായ്യി നടന്ന കൂടിക്കാ ഴ്ചക്കു ശേഷം മന്ത്രി പറഞ്ഞു ഹൈക്കോടതി വിധി വരുന്നതിന് മുൻപ് ചർച്ച നടന്നിരുന്നു വെങ്കിൽ ആവശ്യങ്ങൾ പരിഗണിക്കാമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു കളമശ്ശേരി ബസ് കത്തിക്കൽ കേസിൽ എൻഐഎ കോട തിയിൽ വിചാരണ ഇന്ന് തുട്ടങ്ങും്

ഇന്ന് കേസ് പരിഗണിച്ച് പാല ജുഡീഷ്യൽ മജ്സ്ട്രേറ്റ് കോടതി കുറ്റപത്ര ത്തിന്റെ പകർപ്പ് പ്രതിഭാഗത്തിന് നൽകി

ജില്ലയിൽ പതിനായിരം പേർക്ക് സൌജനൃമായി യോഗാ പരിശീലനം നൽകു മെന്നും സംഘാടകർ പറഞ്ഞു

ആദ്യഘട്ടത്തിൽ സംസ്ഥാ നത്ത് എല്ലാ ജില്ലകളിലുമായി ആയിരം പച്ചത്തൂരുത്തുകൾ നിർമി ക്കും പൊതു സ്ഥലങ്ങളും ഉപയോഗിക്കാത്ത സ്ഥലങ്ങളും കണ്ടെത്തി തനത് വൃക്ഷങ്ങളും തദ്ദേശീയ് സസ്യങ്ങളും ഉൾപ്പെ ടുന്ന മാതൃകാ വനം വളർത്തിയെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം

ജില്ലയിൽ അനുവദിച്ച ഓട്ടിസം പാർക്ക് അനുയോജ്യമായ സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കാൻ നിർദേശിക്കും

കണ്ണൂർ ജില്ലയിൽ ലഹരിവസ്തുക്കളുടെ ഉപയോഗത്തിനും വിൽപനക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ജില്ലാതല ജനകീയ കമ്മിറ്റി തീരുമാനിച്ചു

മൂന്നാറിലും പരിസരപ്രദേശങ്ങളിലും ഇരുന്നൂറിന്റെ കള്ളനോട്ടുകൾ വ്യാപകമാകുന്നു യഥാർഥ നോട്ടുകളെക്കാൾ കനം കുറഞ്ഞ പേപ്പറിലാണ് കള്ളനോട്ടുകൾ നിർമിച്ചിരിക്കുന്നത് സെക്യൂരിറ്റി ത്രെഡ് ഒട്ടിച്ചിരിക്കുകയാണ് വിനോദസഞ്ചാരികളുടെ തിര്ക്കുകൂടുമ്പോൾ മൂന്നാറിൽ കള്ളനോട്ടുകൾ വ്യാപകമായി ലഭിക്കുന്നത് പതിവാണ് മാസങ്ങൾക്ക് മുൻപ്പ് ഇത്തരത്തിൽ അഞ്ഞൂറിന്റെ കള്ളനോട്ടുകൾ ലഭിച്ചിരുന്നു പ്പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി തിരൂർ താനൂർ തീരദേശ മേഖലയിൽ സമാധാനം പൂർണമായി പുനഃസ്ഥാപിക്കാനും സംഘർഷ മനസ്സുകളുടെ മുറിവുണക്കാൻ സമൂഹ ്നോമ്പ് തുറയടക്കം സംഘടിപ്പിക്കാനും തിരൂരിൽ ചേർന്ന സിപിഐഎം ലീഗ് നേതാക്കളുടെ യോഗം തീരുമാനിച്ചു തീരദേശത്ത് അടുത്തിടെ ഉണ്ടായ രാഷ്ട്രീയ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിപിഐ എം ലീഗ് സംസ്ഥാന ജില്ലാ നേതാക്കളുടെ സാന്നിധൃത്തിൽ പ്രാദേശിക നേതാക്കളുടെ യോഗം വിളിച്ചത് കോഴിക്കോട് രൂപതയുടെ നേതൃത്വത്തിൽ യുവജന സംഗമം നാളെയും മറ്റന്നാളും പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും

ഘോഷയാത്ര ബിഷപ് ഡോ വർഗീസ് ചക്കാലയ്ക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്യും മറ്റന്നാൾ സമാപിക്കും